കേന്ദ്ര സർക്കാർ ആരെയും വേർതിരിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടന വഴികാട്ടുന്ന വെളിച്ചമെന്നും പ്രധാനമന്ത്രി

കേസുകൾ

ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു കോടിയിലേക്ക്

എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശ്യമെന്നും ് ഇന്ത്യൻ ഭരണഘടനയാണ് ഇതിന് വഴികാട്ടുന്ന വെളിച്ചമെന്നും ശ്രീ

മെത്രാപ്പൊലീത്ത ഡോ

മികച്ച സാങ്കേതിക വിദ്യ അടിസ്ഥാന സൌകര്യം എന്നിവ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ഗവൺമെന്റ് പദ്ധതികൾ സഹായകരമാകുമെന്നും ശ്രീ

ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡ് പദ്ധതിയിലൂടെ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും റേഷൻ വാങ്ങാൻ കഴിയുന്ന പദ്ധതി സാധാരണക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്തു

സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റേയും വികസനത്തിനായി ജീവിതം ഉഴിഞ്ഞുവച്ച വ്യക്തിയാണ് ജോസഫ് മാർ തോമ മെത്രാപ്പൊലീത്ത എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മഹാരാഷ്ട്ര ഡൽഹി തമിഴ്നാട് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്

എം ആർ അറിയിച്ചു

കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷ് വർദ്ധന്റെ അധ്യക്ഷതയിലാണ് മറിമടക്കുന്നതിൽ രാജൃം നേടിയ പുരോഗതി രാജൃത്ത് വളർന്നുവരുന്ന ആരോഗ്യ അടിസ്ഥാന സൌകര്യം എന്നിവയെപ്പറ്റി സമിതി ചർച്ച ചെയ്യും

സി

നഗരസഭയിലെ ആറ്റുകാൽ കുരിയാത്തി കളിപ്പാൻകുളം മണക്കാട് ടാഗോർ റോഡ് ് തൃക്കണ്ണാപുരം പുത്തൻപാലം വള്ളക്കടവ് വാർഡുകളാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഇവിടെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമാക്കും ചാല നെടുങ്കാട് കാലടി കമലേശ്വരം അമ്പലത്തറ പ്രദേശങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും തിരുവനന്തപുരം ജില്ലാ കലക്ടർ അറിയിച്ചു

അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്നും ചൈനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി വിക്രം മിശ്രി പറഞ്ഞു ചൈനീസ് സൈന്യം കൈക്കൊണ്ട നടപടികൾ ഉഭയകക്ഷി ബന്ധത്തിലെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തിയെന്നും കിഴക്കൻ ലഡാക്കിലെ നടപടികൾ ചൈന അവസാനിപ്പിക്കണമെന്നും ശ്രീ

സഹകരണ ബാങ്കുകളെയും ആർ ബി ഐ

മൻ കി ബാത് പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കും

ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങളിൽ മലയാള പരിഭാഷയും കേൾക്കാം

സ്വർണ വില ഉയർന്നു